പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയ്ക്ക് തക്കതായ മറുപടി സൈനികർ നൽകിയെന്നും പ്രധാനമന്ത്രി

കണ്ണൂരിൽ പുതുതായി ഏഴ് ഹോട്ട് സ്പോട്ടുകൾ

എഴരലക്ഷം കവിഞ്ഞു വൈറസ് വൃാപനം വർദ്ധിക്കുന്നുവെന്ന് ലോകാരോഗൃസംഘടന

എന്നാൽ മാതൃഭൂമിയെ നോട്ടം ഇട്ടവരെ തക്കതായ പാഠം പഠിപ്പിച്ചാണ് അവർ വീരമൃത്യു വരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യൻ സേനയിൽ പൂർണവിശ്വാസമാണ് ഉള്ളത്

നടപടികളും സേനകൾ സ്വീകരിക്കുമെന്നും നമ്മുടെ ഭൂമിയിലേക്ക് കണ്ണു വയ്ക്കുന്നവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത്രയും ശക്തരാണ് രാജ്യമെന്നും ശ്രീ മോദി വ്യക്തമാക്കി

എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം ഉയർത്തുകയാണ് ഏറ്റവും പ്രധാനം അതിർത്തിയിലെ സുരക്ഷകൾ കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികൾ മുന്നോട്ടു പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരം ബന്ധിപ്പിക്കൽ ഭീകരവാദം തടയൽ എന്നിവയിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണന്നും യോഗത്തിൽ നേതാക്കൻമാർ ഉയർത്തിയ നിർദ്ദേശങ്ങൾ ഭാവിയിലേക്കുള്ള അജൻഡ രൂപീകരിക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം കോൺഗ്രസും എല്ലാ പ്രതിപക്ഷപാർട്ടികളും സൈനൃത്തോടൊപ്പമാണെന്ന് കോൺഗ്രസ് അദ്ധ്യക്ഷ സോണിയാഗന്ധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക്ഡൌണിന് ശേഷം സ്വദേശങ്ങളിലേക്ക് തിരികെ എത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനോടൊപ്പം സുസ്ഥിര അടിസ്ഥാന സൌകര്യ വികസനവും പദ്ധതി ലക്ഷ്യമിടുന്നു

മടങ്ങിയെത്തിയ ജില്ലകളെയാണ് ഇതിനായി തെരെഞ്ഞെടുത്തത്

തമിഴ്നാട്ടിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ചെന്നൈ അടക്കം നാല് ജില്ലകളിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ ലോക്ഡൌൺ ഏർപ്പെടുത്തി

ഇതനുസരിച്ച് ചെറിയ രോഗലക്ഷണങ്ങളുള്ളവർക്ക് വീടുകളിൽ കഴിയാം എന്നാൽ ഇവർക്ക് പ്രത്യേക ശുചിമുറിയും സംരക്ഷിക്കാൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും ഉണ്ടായിരിക്കണം ഇവരുടെ ആരോഗ്യം സംബന്ധിച്ച കൃത്യമായ വിവരം അടിക്കടി ജില്ലാ നിരീക്ഷണ ഉദ്യോഗസ്ഥന് കൈമാറാനും മാർഗനിർദേശത്തിൽ പറയുന്നു പരിശോധിക്കുന്ന ഡോക്ടർക്കാണ് രോഗികളെ വീടുകളിൽ നിരീക്ഷണത്തിൽ തുടരാൻ നിർദേശിക്കാവുന്നത് രോഗിയുടെ ആരോഗ്യനില വീട്ടിലെ സാഹചര്യം എന്നിവ അനുസരിച്ചായിരിക്കും ഇത്

കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് ഇരിക്കൂർ കാങ്കോൽ ആലപ്പടമ്പ് കീഴല്ലൂർ മാടായി രാമന്തളി പടിയൂർ എന്നിവയാണ് ഇന്നലെ ഹോട്ട് സ് പോട്ടുകളായി പ്രഖ്യാപിച്ചത്

കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ മയ്യിൽ പാട്യം എന്നിവയേയാണ് ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയത്

ഇന്നുമുതൽ യാത്ര തിരിക്കുന്ന വിമാനങ്ങളിൽ എത്തുന്നവർക്കാണ് രേഖ നിർബന്ധമാക്കിയിരുന്നത് പരിശോധനക്ക് സൌകര്യമൊരുക്കാൻ കൂടുതൽ സമയം വേണമെന്ന് വിവിധ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് നിബന്ധന നടപ്പാക്കുന്നത് നാലുദിവസം നീട്ടിയതെന്ന് നോർക്ക പ്രിൻസിപ്പൽ സ്ക്രെട്ടറി ഡോ

പ്പുതുതായി റിപ്പോർട്ട് ചെയ്തതിൽ പകുതിയോളം അമേരിക്കയിൽ നിന്നാണെന്നും ് തെക്കനേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും രോഗ് പ്പ്യാപനം രൂക്ഷമാണെന്നും ഡബ്പൂ

മുഹാമാരിയെ ലോകം അതിജീവിക്കുമെന്നും ഭാവിയിൽ ഇത്തരത്തിലു്ള്ള ദുരന്തത്തെ നേരിടാൻ ലോകം തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അവികസിത രാജ്യങ്ങളുടെ കാര്യത്തിലാണ് ഡബ്ലൂ

ലോകത്താകമാനമുള്ള ശാസ്ത്രജ്ഞൻമാർ വൈറസിനുള്ള വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്

അരുണാചൽപ്രദേശിലെ ഏക സീറ്റിൽ നിന്നും ബി ജെ പി യുടെ നബാം റെബിയ രാജ്യസഭയിലെത്തും

രാജസ്ഥാനിൽ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസും ഒന്നിൽ ബി ജെ

ഐ

സി ജനറൽ സെക്രട്ടറിയും മലയാളിയുമായ കെ

ജെ

ജെ

മേഘാലയയിൽ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് നേതാവും എൻ

പി സംസ്ഥാന അദ്ധ്യക്ഷനുമായ ഡോ

മിസോറാമിൽ മിസോ നാഷണൽ ഫ്രണ്ട് സ്ഥാനാർത്ഥി കെ

കോൺഗ്രസ്സിന്റെ ടി

ക്കർണാടകയിൽ മുൻ കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി ദേവഗൌഢ്യ കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഘാർഗെ ബി ജെ പി സ്ഥാന്ട്രർത്ഥികളായ ഇറാന കടാടി അശോക് ഗസ്ഥി എന്നിവരാണ് തെൽക്ക്കപ്പെട്ടത് അരുണാചൽ പ്രദേശിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിബ്ബാം റേബിയ ്നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു